ബാങ്ക് ഓഫ് ബറോഡ വിജയബാങ്ക് ദേന ബാങ്ക് എന്നിവ ലയിക്കുന്നതോടെ മൂന്നാമത്തെ വലിയ ബ്രാങ്കായി മാറുമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാജ്യത്ത് കോൺഗ്ര സിന്റെ നേതൃത്വത്തിലാണ് വൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന് ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് സംസ്ഥാനത്തെ കൺസ്യൂമർഫെഡ് ഗോഡൌണുകളിൽ വിജിലൻസ് പരിശോധനയിൽ ഗുണനിലവാരമില്ലാത്ത പരിപ്പും പയറും വിറ്റഴിക്കുന്നതായി കണ്ടെത്തി ബാർക്കോഴ കേസിൽ കെഎം മാണിയെ കുറ്റവിമുക്തനാ ക്കണമെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ ഇടക്കാലവിധി ഇന്ന് തിരുവനന്തപുരം റെയിൽവെ ഡിവിഷനിൽ പാസഞ്ചർ ട്രെയി നുകൾ റദ്ദാക്കിയത് ഞായറാഴ്ച വരെ തുടരും ഏഷ്യകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനോട് തോറ്റ് ശ്രീലങ്ക പുറത്തായി ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും രാജ്യത്തെ മൂന്ന് പൊതുബാങ്കുകളെക്കൂടി ലയിപ്പിക്കാൻ കേന്ദ്ര ഗവ തീരുമാനിച്ചു ബാങ്ക് ഓഫ് ബറോഡ വിജയബാങ്ക് ദേന ബാങ്ക് എന്നീ ബാങ്കുകളെയാണ് ലയിപ്പിക്കുന്നതെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ന്യൂഡൽഹിയിൽ അറിയിച്ചു ലയനശേഷം രൂപീകൃതമാകുന്ന ബാങ്ക് എസ്ബിഐയെയും ഐസിഐസിഐ യും കഴിഞ്ഞാൽ രാജ്യത്തെ വലിയ മൂന്നാമത്തെ ബാങ്കായി മാറും മൂന്നു ബാങ്കുകളിലെയും നിലവിലെ ജീവനക്കാരുടെ സേവന വ്യവസ്ഥകളെ ലയനം ഒരുവിധത്തിലും ദോഷകരമായി ബാധിക്കി ല്ലെന്ന് ധനമന്ത്രി അറിയിച്ചു ബാങ്കുകളുടെ ഏകോപനം ഗവ ന്റെ അജണ്ടയുടെ ഭാഗമാ ണെന്നും കഴിഞ്ഞവർഷം അസോസിയറ്റ് ബാങ്കുകളെ എസ്ബിഐ യിൽ ലയിപ്പിച്ചത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണെന്നും ജെയ്റ്റ്ലി പറഞ്ഞു ലയനം ബാങ്കുകളെ ശക്തവും സുസ്ഥിരവുമാക്കും സാമ്പ ത്തിക വളർച്ചയും ബാങ്കുകളുടെ കടംകൊടുക്കൽ ശേഷിയും വർധി ക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു

അമേരിക്ക്യും ചൈനയും തമ്മിലെ വ്യാപാര യുദ്ധവും അമേരിക്കയുടെ ആഭ്യന്തരനയ തീരുമാനങ്ങളും ഉൾപ്പെടെ ആഗോള ഘടകങ്ങൾ രൂപയുടെ മൂല്യത്തെ സ്വാധീനിക്കു ന്നുണ്ടെന്ന് ജെയ്റ്റ്ലി പറഞ്ഞു

ഗോവയിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കണമെന്ന് ആവ ശ്യപ്പെട്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസ് ഗവർണർക്ക് കത്ത് നൽകി

എംഎൽഎമാർ ഇന്ന് വീണ്ടും ഗവർണറെ കാണും രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃ ത്വത്തിലാണ് വൻ സ്വാതന്ത്യസമരം ആരംഭിച്ചതെന്ന് ആർ എസ് എസ് നേതാവ് മോഹൻഭാഗവത് പറഞ്ഞു ഒട്ടേറെ മഹത് വ്യക്തിത്വങ്ങളെ കോൺഗ്രസ് രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടു

ന്യൂഡൽഹിയിൽ ഭാരത ത്തിന്റെ ഭാവി ഒരു ആർഎസ്എസ് വീക്ഷണം എന്ന വിഷയത്തിൽ ആരംഭിച്ച മൂന്ന് ദിവസത്തെ പ്രഭാഷണ പരമ്പരയിൽ ആദ്യദിനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ പൂർണമായും വൈവിധ്യം നിറഞ്ഞതാണെന്നും അത് ആദരിക്കുകയും ആഘോഷിക്കുകയും വേണം വൈവിധ്യം ഭിന്ന തക്ക് കാരണമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തെ ഒന്നി പ്പിക്കുന്നതിന്റെ ഭാഗമായി നമ്മെ എതിർക്കുന്നവർപ്പോലും നമുക്ക് അന്യരല്ലെന്നും മോഹൻഭാഗവത് പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊ ള്ളുന്ന ആരെയും പുറത്താക്കാത്ത ഇന്ത്യയിലാണ് ആർഎസ്എസ് വിശ്വസിക്കുന്നത് രാജ്യം ആരു ഭരിക്കുന്നുപ്പെന്ന് നോക്കാറില്ലെന്നും ആധിപത്യത്തിന് ശ്രമിക്കാറില്ലെന്നും ആർഎസ്എസ് മേധാവി വൃക്തമാക്കി സംസ്ഥാനത്തെ കൺസ്യൂമർഫ്ഡ് ഗോഡൌണുകളിലും ഔട്ട്ലെറ്റുകളിലും വിജില്ൻസ് പരിശോധന നടത്തി ഭക്ഷ്യസു രക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധന യിൽ ഗുണനിലവാരമില്ലാത്ത പരിപ്പും പയറും വിറ്റഴിക്കുന്നതായി കണ്ടെത്തി ഗോഡൌണുകളിൽ നിന്നും ഔട്ട്ലെറ്റുകളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചെന്നും മേൽ നടപടിക്ക് ഗവ ന് റിപ്പോർട്ട് നൽകു മെന്നും വിജില്ലൻസ് ഡയറക്ടർ മുഹമ്മദ് യാസിം തിരുവനന്തപു രത്ത് പറഞ്ഞു കൺസ്യൂമർഫെഡ് വഴി വിറ്റഴിക്കുന്ന പയർവർഗ്ഗങ്ങളുടെ ഗുണ നിലവാരം കുറവാണെന്ന പരാതിയെ തുടർന്നായിരുന്നു മിന്നൽ പരി ശോധന കൺസ്യൂമർഫെഡ് വഴി ഗുണനിലവാരം കുറഞ്ഞ പയറുത്പ ന്നങ്ങൾ വിതരണം ചെയ്തതിന് കാരണക്കാരായവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കടകംപളളി സുരേന്ദ്രൻ പറ ഞ്ഞു കൺസ്യൂമർഫെഡിന്റെ ചില ഔട്ട്ലെറ്റുകളിൽ ഗുണനില വാരം കുറഞ്ഞ പയർ ഉത്പന്നങ്ങൾ വിതരണം ചെയ്തുവെന്ന പരാതി ശ്രദ്ധയിൽ പെട്ടതിനെ തുടർന്നാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു ബാർകോഴക്കേസിൽ മുൻമന്ത്രി കെഎം മാണിയെ കുറ്റവിമു ക്തനാക്കണമെന്ന വിജിലൻസ് റിപ്പോർട്ടിൽ തിരുവനന്തപുരം വിജി ലൻസ് കോടതി ഇന്ന് ഇടക്കാലവിധി പറയും മാണിക്കെതിരെ തെളിവില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് എന്നാൽ ഈ റിപ്പോർട്ട് തളളണമെന്നും മാണിക്കെതിരെ തുടരന്വേഷണം വേണമെന്നും ഹർജിക്കാരായ വി മുരളീധരൻ എം പി എൽഡിഎഫ് കൺവീ നർ എ വിജയരാഘവൻ വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടിരുന്നു പെട്രോൾ ഡീസൽ വില ഇന്നും വർധിച്ചു സംസ്ഥാനത്ത് പെട്രോളിനും ഡീസലിനും പത്ത് പൈസ വീതുമാണ് കൂടിയത്

തിരുവനന്തപുരം റെയിൽവെ ഡിപ്പിഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കിയത് ഞായറാ ഴ്ചവരെ തുടരുമെന്ന് റെയിൽവെ അറിയിച്ചു ഗുരുവായൂർ തൃശൂർ ഗുരുവായൂർ പുനലൂർ കൊല്ലം കോട്ടയം വഴി പോകുന്ന എറണാകുളംകായംകുളം എറണാകുളം പാസ ഞ്ചർ വണ്ടികളാണ് പ്രൂർണമായും റദ്ദാക്കിയത് തൃശൂർ ക്യോഴിക്കോട് പാസഞ്ചർ ഷൊർണൂരിൽ നിന്നാവും പുറപ്പെടുക കോഴിക്കോട് തൃശൂർ പാസഞ്ചർ ഷൊർണൂരിൽ യാത്ര അവസാനിപ്പിക്കും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അവസാനവട്ട പരിശോധനകൾക്ക് സിവിൽ എവിയേഷൻ ഡയറക്ടർ ജനറലിന്റെ വിദഗ്ധ സംഘം കണ്ണൂരിലെത്തി ഡെപ്യൂട്ടി ഡയറക്ടർ സന്താ നം അസിസ്റ്റന്റ് ഡയറക്ടർ അശ്വിൻ കുമാർ എന്നിവരാണ് പരി ശോധനയ്ക്ക് എത്തിയത് ഇന്നും നാളെയും സംഘം പരിശോ ധന നടത്തും പരിശോധനയ്ക്ക് ശേഷം യാത്രാവിമാനം ഉപയോ ഗിച്ച് പരീക്ഷണപറക്കൽ നടത്താനാണ് അധികൃതർ ആലോചി ക്കുന്നത്

ഇത്തരം കീട നാശിനികൾ നിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സംസ്ഥാന ഗവ കൾക്ക് അധികാരം നൽകണമെന്ന ആവശ്യവും ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട് ഏഷ്യകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനോട് തോറ്റ് ശ്രീലങ്ക ടൂർണമെന്റിൽ നിന്ന് പുറത്തായി

ആദ്യമത്സരത്തിൽ ബംഗ്ലാദേശി നോടും ശ്രീലങ്ക തോറ്റിരുന്നു ഇന്ന് വൈകിട്ട് അഞ്ചിന് അബ്ദാബിയിൽ ആദ്യമത്സരത്തിൽ ഇന്ത്യ ഹോങ്കോങ്ങിനെ നേരിടും നാളെയാണ് ഇന്ത്യ പാക് മത്സ രം

ദുരിതത്തിൽ തകർന്നു പോയ കേരളത്തെ കരകയറ്റുക ഓരോരുത്തരുടെയും കടമയാണെന്നും ഏവരുടെയും സഹകരണമാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്നും മന്ത്രി ഇ

ജയരാജൻ പറഞ്ഞു കണ്ണൂർ ജില്ലിയിലെ അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് ബാങ്കിന്റെ പനയത്താംപറമ്പ് ശാഖ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നവകേരളം നിർമിക്കുമെന്ന് വാതോരാതെ പറയുന്ന ഗവ ന് ഇക്കാര്യത്തിലുളള കാഴ്ചപ്പാട് വ്യക്തമാക്കണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു പത്ത നംതിട്ട പ്രസ്ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം നവകേരള നിർമാണ കാര്യത്തിൽ ഗവ നോ ഉദ്യോഗസ്ഥർക്കോ വൃക്തമായ കാഴ്ചപ്പാടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ പുനർ നിർമ്മിതിക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് പ്രളയ ബാധിത ജില്ലയായ ആലപ്പുഴ യിൽ നിന്ന് ലഭിക്കുന്നത് വലിയ തോതിലുള്ള സഹായം

മന്ത്രിമാരായ പി തിലോത്തമനും ജി സുധാകരനും ഓരോ നിയോജക മണ്ഡലത്തിലും നേരിട്ട് എത്തിയാണ് നിധി ഏറ്റുവാങ്ങുന്നത്

മന്ത്രിമാരായി ഇ പി ജയരാജൻ കെ കെ ശൈലജ എന്നിവരു ടെ നേതൃത്വത്തിൽ നാല് ദിവസമാണ് ധ്നശേഖരണ ക്യാമ്പ് നട ത്തിയത്

ഇടുക്കി ജില്ലയിലെ നാലു ബ്ലോക്കുകളിൽ നിന്നും സമാഹരിക്കുന്ന തുക് മന്ത്രി എം

രാവിലെ ദേവിക്കുളം ബ്ലോക്കിലും ഉച്ചക്ക് നെടുങ്കണ്ടം കട്ടപ്പന ബ്ലോക്കുകളിലും വൈകിട്ട് അഴുത ബ്ലോക്കിലും നടക്കുന്ന ചടങ്ങുകളിലാണ് ൃതുക ഏറ്റുവാങ്ങുക സംസ്ഥാനത്ത് പ്രളയബാധിത പ്രദേശങ്ങളിൽ കൃഷിയുടെ പുന രുജ്ജീവനം ് ലക്ഷ്യമിട്ട് കാർഷിക സർവ്വകലാശാല മണ്ണ് സംര ക്ഷണം വിള പരിപാലന പരിശീലന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഒരാഴ്ചത്തെ പരിപാടി കൃഷി വിജ്ഞാനകേന്ദ്രങ്ങൾ മുഖേന യാണ് ജില്ലകളിൽ നടപ്പാക്കുന്നത് മണ്ണ്ട വിള സംരക്ഷണങ്ങൾക്ക് സ്വീകരിക്കേണ്ട അടിയന്തര നടപടികളെ കുറിച്ച് കർഷകരെ ബോധ വൽക്കരിക്കാനും ശാസ്ത്രീയമായ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പരിചയ പ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് വിജ്ഞാന വ്യാപന ഡയറക്ടർ ഡോ

പ്രവാസി വരുമാനമാണ് സംസ്ഥാനത്തിന്റെ നട്ടെല്ലെന്ന് സ ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു കേരള പ്രവാസി വെൽഫെയർ ബോർഡ് മലപ്പുറം ലെയ്സൺ ഓഫീസ് ഉദ്ഘാടനംചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രവാസികൾ നൽകിയ സംഭാവനകളോട് നീതിപുലർത്താൻ കഴിഞ്ഞിരുന്നില്ലെന്നും ഇപ്പോൾ അതിന് പ്രായശ്ചിത്തമായി പ്രവാസികളെ സഹായിക്കുന്ന നിരവധ്പി പദ്ധതികൾ ഗവ നടപ്പാക്കുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ് നിധിയിലേക്ക് കേരള പ്രവാസിസംഘം ജില്ലാ കമ്മിറ്റി നൽകുന്ന ഒരുലക്ഷം രൂപയുടെ ചെക്കും സ്പീക്കർ ഏറ്റുവാങ്ങി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ബിജെപി ക്ക് പ്രതീക്ഷയുളള മണ്ഡലമാണെന്ന് പാർട്ടി സംസ്ഥാന പ്രസി ഡന്റ് പി എസ് ശ്രീധരൻപിളള പറഞ്ഞു പത്തനംതിട്ട പ്രസ്ക്ത ബ്ബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിനുണ്ടായ ക്ഷീണം ബിജെപിക്ക് ഗുണകരമാകു മെന്നും ശ്രീധർൻപിളള അവകാശപ്പെട്ടു എറണാകുളം മഹാരാജാസ് കോളജ് വിദ്യാർത്ഥി അഭിമന്യു വിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ഒളിവിൽ കഴി യുന്ന എട്ട് പ്രതികൾക്കെതിരെ പൊലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു മുഹമ്മദ് ഷഹിം ഫായിസ് പി എം ആരിഫ് ബിൻ സലിം ഷിഫാസ് വിഎൻ സഹൽ ജിസാൽ റസാഖ് തൻസീൽ സനിദ് എന്നിവർക്കെതിരെയാണ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടു വിച്ചത് സമുദ്രത്തെ അടിസ്ഥാനമാക്കി ഗവേഷണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഇനിയും വേണ്ടവിധം വികസിച്ചു വന്നിട്ടില്ലെന്ന് പ്രശസ്ത സമുദ്ര ശാസ്ത്രജ്ഞ ൻ പ്രൊഫ

കണ്ണൂർ സർവകലാശാല മോളിക്യൂലർ ബയോളജി വിഭാഗത്തിന്റെ ദശവാർഷികത്തോടനുബന്ധിച്ചു നീലേശ്വരത്ത് സംഘടിപ്പിക്കുന്ന പ്രഭാഷണപരമ്പരയിൽ മറൈൻ ബയോടെക്നോളജി സാധ്യതകളും സമീപനങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം സ്വകാര്യവ്യക്തിയുടെ വീടിന്റെ സംരക്ഷണഭിത്തി നിർമാണത്തിന് മണ്ണെടുക്കുന്നതിനിടെ മണ്ണിടിഞ്ഞ് നിലമ്പൂരിൽ തമിഴ്നാട് സ്വദേശികളായ മൂന്നുപേർക്ക് പരിക്കേറ്റു ചാലിയാർ പുഴയുടെ തീരത്ത് കാലവർഷക്കെടു തിയിൽ തകർന്ന വീടിന്റെ സംരക്ഷണഭടിത്തിക്ക് വേണ്ടി മണ്ണെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികളുടെ മുകളിലേക്ക് ഉയരത്തിൽ നിന്ന് മൺതിട്ട ഇടിഞ്ഞു പ്രീഴുകയായിരുന്നു ശബരിമലയിൽ ദേവപ്രശ്ന പ്രിഫാരക്രിയകൾ രണ്ടാംദിവ സമായ ഇന്നും തുടരും